പി ആസ്ഥാനത്ത് കേരളാ പൊലീസ് ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കും വാർത്തകൾ വിശദമായി കൂട്ടായ്മയും നവീകരണവും വഴി മാത്രമേ സുസ്ഥിര വികസന ലക്ഷ്യത്തിലെത്താൻ കഴിയൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ജനങ്ങളുടെ ആരോഗ്യവും കാലാവസ്ഥയുടെ ആരോഗ്യവും പരസ്പരബന്ധിതമാണെന്നും ലോകത്തിന്റെ ഭാവി നിർണയിക്കുന്നത് ഇവ രണ്ടും ചേർന്നായിരിക്കുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു യുവജനങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കണം ഇനി വരുന്ന നിക്ഷേപങ്ങളെന്നും യുവതയുടെ ഊർജ്ജം അസാധാരണ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമൂഹത്തിലെ പാവപ്പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാരീസ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പാലിച്ച് ലക്ഷ്യം നേടിയെടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്ക്കണ വകുപ്പ് അഡീഷൺ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിക്കും

രാഷ്ട്രീയ പരിഗണനയോടെയല്ല ഈ നടപടിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഇന്നലെ വൈകീട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി മേള ഉദ്ഘാടനം ചെയ്തു

എന്നാൽ ചലച്ചിത്ര മേളയിലെ പ്രദർശനം രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവനയ്ക്ക് പുരസ്കാരം ലഭിച്ച വിഖ്യാത ഫ്രഞ്ച് സംവിധായകൻ ഴാങ് ലൂക്ക് ഗൊദാർദിന് വേണ്ടി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മന്ത്രി എ

ബാലനിൽ നിന്ന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങി

ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ റിലീസ് ചിത്രം ചുരുളി യുടെ ആദ്യ പ്രദർശനവും ഇന്നാണ്

ദീൻദയാലിന്റെ ജീവിതവും സന്ദേശവും എക്കാലത്തേയും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു രുഭ സംസ്ഥാന ക്ഷീര സംഗമം ഇന്ന് രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും ടൌൺ ഹാളിലെ ചടങ്ങിൽ ഡോ വർഗീസ് കുര്യൻ അവാർഡ് ഗവർണർ വിതരണം ചെയ്യും മന്ത്രി കെ രാജു അധ്യക്ഷനായിരിക്കും

രുഭ ലഹരി ഉപയോഗം ചെറുക്കാൻ ക്യാമ്പസ് പൊലീസ് യൂണിറ്റ് ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഗവൺമെന്റിന് നിർദേശം നൽകി ക്യാമ്പസിൽ പൊലീസ് പരിശോധന നടത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിർദേശം

പി ആസ്ഥാനത്ത് കേരള പൊലീസ് ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മലബാർ സ്പെഷ്യൽ പൊലീസ് രൂപീകരണത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തുടങ്ങുന്ന അക്കാദമിയുടെ ഡയറക്ടർ പ്രശസ്ത ഫുട്ബോളറും പൊലീസ് സേനാംഗവുമായ ഐ

വിജയനാണ് രും പുനലൂർ താലൂക്ക് ആശുപത്രി വികസനം മലയോര മേഖലയിലെ പാവപ്പെട്ടവർക്ക് ആശ്രയമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യാന്തര നിലവാരത്തോടെ നവീകരിച്ച ആശുപത്രി കെട്ടിടം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടുത്തഘട്ടത്തിൽ ആശുപത്രിയിൽ പുതിയ ചികിത്സാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷയായിരുന്ന കെ

ശൈലജ പറഞ്ഞു രുര കൊല്ലം ജില്ലയിൽ പൂർത്തിയായ മലയോര ഹൈവേയുടെ ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് ഉദ്ഘാടനം ചെയ്യും

രുര കോഴിക്കോട് ബീച്ച് ഗവ ജനറൽ ആശുപത്രിയിലേയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേയും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മന്ത്രി കെ കെ ശൈലജ നിർവഹിക്കും ബീച്ച് ആശുപത്രിയിൽ നവീകരിച്ച പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാത്ത് ലാബും കോഴിക്കോട് മെഡിക്കൽ കോളജിലെ പുതിയ കാത്ത് ലാബ് ടെലി കൊബാൾട്ട് മെഷീൻ എന്നിവ ഇതിൽപെടും

ജില്ലാ പൈതൃക മ്യൂസിയം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വൈകീട്ട് കൽപ്പാത്തിയിൽ ഉദ്ഘാടനം ചെയ്യും രുമ ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ്സി ക്ക് വിജയം ഗോവയിൽ ഇന്നലെ ചെന്നൈയിൻ എഫ്സി യെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് വൈകീട്ട് ഏഴരക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സി യെ നേരിടും

കേരളത്തിന്റെ മൂന്നാം വിജയമാണിത്

ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ്

രുര കേരളത്തിൽ സർവ്വീസ് നടത്തുന്ന എല്ലാ ഗവൺമെന്റ് യാത്രാ ബോട്ടുകളും ആധുനിക സൌകര്യത്തോട് കൂടിയ കാറ്റ മറൈൻ ബോട്ടുകളാക്കി മാറ്റും ആദ്യഘട്ടത്തിൽ എറണാകുളം മേഖലയിലെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വൈപ്പിൻ റൂട്ടുകളിലായിരിക്കും സർവ്വീസ് നൂറ് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ബോട്ടുകളിൽ യാത്രാ സൌകര്യങ്ങളും സുരക്ഷയും കൂടുതലായിരിക്കും ആവശ്യമായ ബോട്ടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായി ജല ഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി

ജില്ലയിൽ വാട്ടർ ടാക്സി സർവ്വീസ് തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് രും ചാനലുകളിലെ ഓഡിയോ വിഷ്വൽ പരിപാടികളും റിയാലിറ്റി ഷോകളും ബാലവേല നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ നടത്താവു എന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവിട്ടു ജില്ലാ മജിസ്ട്രേറ്റിന്റെ മുൻകൂർ അനുമതിയും നിയമാനുസൃത അപേക്ഷയും രക്ഷിതാക്കളുടെ സമ്മതപത്രവും പരിപാടികൾക്ക് ആവശ്യമാണ്

മഹാത്മജിയുടെ ചിതാഭസ്മം നിള ഏറ്റുവാങ്ങിയതിന്റെ പുണ്യ സ്മരണയിൽ കേരള ഗാന്ധി കെ കേളപ്പന്റെ സമാധിഘട്ടിന് സമീപം ദേശീയോദ്ഗ്രഥന പട്ടം പറത്തിയായിരുന്നു മേളക്ക് തുടക്കം കുറിച്ചത്

രംഭ കോഴിക്കോട് എസ്

പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിലെ മിനി തിയറ്റർ കം ഓപ്പറ ഹൌസ് മന്ത്രി എ

രമേ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യുവരിച്ച ഹവിൽദാർ വി

വസന്തകുമാറിന്റെ കുടുംബത്തിന് വയനാട് പുത്തൂർവയലിൽ സഹകരണ വകുപ്പ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചടങ്ങ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു

കയ്യൂർ ഇ

നായനാർ സ്മാരക ഗവൺമെന്റ് ഐടിഐ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി രുര നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സാംസ്കാരിക നായകർക്ക് ഓരോ ജില്ലയിലും സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിച്ച് വരികയാണെന്ന് മന്ത്രി എ